രാജ്യത്തിന്റെ വാതക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് എൽ എൻ ജി ടെർമിനലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ദേശവ്യാപകമായി വാതകഗ്രിഡും നഗര വാതക വിതരണവും മെച്ചപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് പ്രാമുഖ്യം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അടുത്ത് നടക്കാനിരിക്കുന്ന നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പുകളിൽ പ്പോട്ടിംഗ് യന്തങ്ങൾക്ക് പകരം ബാലറ്റുകൾ ഉപയോഗിക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി തള്ളി

പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലെ ദേരാബാബാ നാനാക്കിൽ നിന്നും അന്താരാഷ്ട്ര അതിർത്തിയിലേക്ക് കർത്താപൂർ ഇടനാഴി നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം

ശബരിമലയിൽ നിരോധനാജ്ഞ നീട്ടണമെന്ന് പോലീസ് നിരോധനം ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്

ജി ടെർമിനലുകളും വാതക ഗ്രിഡും നഗരവാതക വിതരണ സംവിധാനവും വിപുലീകരിച്ച് ശക്തമാക്കുന്നതിന് ഗവൺമെന്റ് പ്രവർത്തിച്ചു പ്രുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ദ്ദ് ജില്ലകളിലെ നഗര വാതകവിതരണ പദ്ധതികൾക്ക് തുട്ക്കം കുറിച്ച് ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാന്യമന്ത്രി വാതകാടിസ്ഥാന സമ്പദ്ഘടനയുടെ വിവിധ് പ്പശ്ങ്ങളിൽ കേന്ദ്രം ശ്രദ്ധ പതിപ്പിക്കുന്നതായി ശ്രീ

വാതകാധിഷ്ഠിത സമ്പദ്ഘടനയും ശുദ്ധമായ ഊർജ്ജവും സംബന്ധിച്ച ലക്ഷ്യങ്ങൾ ഇന്ത്യ നേടേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്നും അതിനാൽ സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെട്ടൂപ്പ് ഉറപ്പാക്കാൻ അതുപയോഗിക്കരുതെന്നുമുള്ള ആവശ്യില് കോടതി അംഗീകരിച്ചില്ല ഏത് സംവിധാനവും മെഷീനും ദൂര്ഭൂപ്യോഗം ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്ന് സുപ്രീംക്ട്രോട്ടതി ്അഭിപ്രായപ്പെട്ടു

കേന്ദ്ര ഗവൺമെന്റ് ധനസഹായത്തോടെയാകും ഇടനാഴി നിർമ്മിക്കുകയെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു പാകിസ്ഥാനിലെ ഗുരുദാര ദർബാർ സാഹിബിൽ എളുപ്പം എത്തിച്ചേരാൻ ഇതുവഴി തീർത്ഥാടകർക്ക് കഴിയുമെന്ന് ശ്രീ

ചരിത്രനഗരമായ സുൽത്താൻപൂർ ലോധി സ്മാർട്ട് സിറ്റി തത്വങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കാനും തീരുമാനമായി ഇവിടത്തെ റെയിൽവേ സ്റ്റേഷനും വികസിപ്പിക്കും

രാജ്യമെമ്പാടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതിന്റെ ഭാഗമായി ആഘോഷങ്ങൾ സംഘടിപ്പിക്കും ഇതിന് പുറമേ നാണയവും സ്റ്റാമ്പും കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കും

ബി ജെ പിയും കോൺഗ്രസും വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി

റാവത്തിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതലതല സംഘം ഹൈദ്രാബാദിലെത്തി അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി സംഘം ചർച്ച നടത്തും

ചീഫ് സെക്രട്ടറി ഡി ജി

ചലച്ചിത്രസംവിധായകർ അഭിനേതാക്കൾ ജൂറി അംഗങ്ങൾ മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സംഘാടകർ എന്നിവർക്കെല്ലാം പൊതുവായ വേദി ഓപ്പൺ ഫോറം നൽകുന്നു

നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രിയിൽ അവസാനിക്കിരിക്കെയാണ് സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് പുതിയ റിപ്പോർട്ട് നൽകിയത് ജില്ലാ കളക്ടർ ഇന്ന് ഇതേപ്പറ്റി തീരുമാനമെടുക്കും എന്നാൽ ഭക്തരെ തടയുന്ന തരത്തിലുള്ള നിരോധനാജ്ഞ ശബരിമലയിൽ ഇല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ പറഞ്ഞു അതേസമയം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനാജ്ഞ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി

ഉത്തരകൊറിയയുടെ കിം ഹാങ് നിയെ സെമിയിൽ പരാജയപ്പെടുത്തിയാണ് മേരി കോം ഫൈനലിൽ എത്തിയത്

ഇന്ത്യയിൽ സാമ്പത്തിക സാമൂഹ്യ മാറ്റം ഉണ്ടായത് സാങ്കേതിക വിദ്യയും നവീകരണവും മൂലമാണ്

ബിസിനസ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധനകാര്യത്തിലും മറ്റുമുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്ത്യ ഓസ്ട്രേലിയ വ്യാപാരം വർദ്ധിപ്പിക്കുന്നത് ഇരു രാഷ്ട്രങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞു നിക്ഷേപത്തിന്റെ ഗുണം ഇരുകൂട്ടർക്കും ലഭിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ആധുനികവും സമഗ്രവും ഇരു രാജ്യങ്ങൾക്കും പ്രയോജന്റും നൽകുന്നതുമായ സന്തുലിത സാമ്പത്തിക പങ്കാളിത്തമാണ് ് ഇന്ത്യയും ഓസ്ട്രേലിയയും ലക്ഷ്യമിടുന്നത് നേര്ത്തെ സിഡ്നിയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാസ്സിയുടെ പ്രതിമ ശ്രീ രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ച്ചെയ്തു് ഓസ്ട്രേലിയയിലെ നിരവധി ഇന്ത്യക്കാർ ചടങ്ങിൽ പിക്കൂടുത്തു ചടങ്ങിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് ഹിന്ദ്സ്വരാജ് എന്ന പുസ്തകം രാഷ്ട്രപതി സമ്മാനിച്ചു

ആശയപരമായി വൃത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന പാർട്ടികൾ അധികാരത്തിന് വേണ്ടി മാത്രം ഗവൺമെന്റ് രൂപീകരിക്കാൻ മൂന്നോട്ട് വരികയായിരുന്നു ഇതിൽ ചില പാർട്ടികൾ നേരത്തെ നിയമസഭ പിരിച്ചു വിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു

സംസ്ഥാന അസംബ്ലി പിരിച്ചു വിട്ട സാഹചരൃത്തിൽ ഭാവിയിൽ കൈക്കൊള്ളേണ്ട നടപടികൾ സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ ചർച്ച ചെയ്തു